മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് എ ഐ

ഡി ജെ

തൃശ്ശുരിലെയും വയനാട്ടിലെയും തീരുമാനം പിന്നീട്

മറ്റെന്നാൾ വരെ സംസ്ഥാനത്ത് സൂര്യാഘാതത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വൈദ്യുതിപ്രതിസന്ധിയുണ്ടാവില്ലെന്ന് കെ എസ് ഇ ബി

വാഹനാപകടങ്ങളിൽ അഞ്ച് പേർ മരിച്ചു

തമിഴ്നാട്ടിലും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കും

ഇക്കാര്യത്തിൽ ദക്ഷിണേന്തൃയിലെ കോൺഗ്രസ് പ്രവർത്ത്കരു്ടെ ജനവികാരം മാനിക്കുമെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല അറിയിച്ചു

വയനാട്ടിൽ രാഹുൽ മത്സരിക്കണമെന്ന നിലപാടിലാണ് കെ

ഡി ജെ

ഡിജെ

തഴവ സഹദേവനും ആലത്തൂരിൽ ടി

തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഏത് സീറ്റിലെന്ന കാര്യം രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു

ആലപ്പുഴ കോട്ടയം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ വിദഗ്ദധർ അറിയിച്ചു മറ്റ് എട്ട് ജില്ലകളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ എൽനീനോ പ്രതിഭാസത്തിൻറെ സ്വാധീനം തുടരുന്നതിനാൽ വേനൽമഴയ്ക്ക് സാധ്യത കുറവാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കെഎസ്ഇബി സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്റർ ചീഫ് എൻജിനീയർ പി കേശവദാസ് ആകാശവാണിയോട്

ജലസേചനം ബുദ്ധിമുട്ടായതോടെ കരിമ്പിൻ പാടങ്ങളും നെല്ലും കവുങ്ങിൻ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും വരണ്ടു തുടങ്ങി

ചെറുതും വലുതുമായ കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ക്ലോറിനേഷനും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കണമെന്നും വഴിയോര കച്ചവട്ട ർസ്ഥാപനങ്ങളിൽ തുറന്നു വച്ചിരിക്കുന്ന പാനീയങ്ങൾ കുടിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്

വയനാട് വൈത്തിരിയിൽ കാറും ടിപ്പറും കൂട്ടിയിടിച്ചാണ് മൂന്നു പേർ മരിച്ചത്

ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് വെള്ളയംകുടിയിൽ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടു പേരും മരിച്ചു രാജൻ ഏലിയാമ്മ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടു പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഞാറാഴ്ച വൈകീട്ടാണ് ഇവരെ കൊല്ലം ബീച്ചിനുസമീപത്തെ കടലിൽ കാണാതായത് ശാന്തിനി തിരയിൽപ്പെടുന്നതുകണ്ട് രക്ഷിക്കാനിറങ്ങിയപ്പോഴാണ് സുനിൽകുമാറും തിരയിൽപ്പെട്ടത്

മുബൈയിൽ നിന്നാണ് പെൺകുട്ടിയെയും ഒന്നാം പ്രതി മുഹമ്മദ് റോഷനേയും കേരളത്തിൽ നിന്നുള്ള അന്വേഷണസംഘം ഇന്ന് രാവിലെ കണ്ടെത്തിയത് മുഹമ്മദ് റോഷനെ കസ്റ്റഡിയിലെടുത്തു

സംഭവത്തിൽ മൂന്ന്പേർ നേരത്തേ അറസ്റ്റിലായിരുന്നു

എം ആലപ്പുഴക്കാരുടെ ചിരകാലഭിലാഷമായ ആകാശവാണിയുടെ അഞ്ചുകിലോ വാട്ട് എഫ്

തിരുവനന്തപുരം പ്രാഥമിക ചാനൽ ഇല്ലാത്ത ഉച്ചയ്ക്ക് മൂന്നു മുതൽ അഞ്ചു മണി വരെ ഡി

ഇടുക്കി അഡ്ീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ഉമ്മന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല കോർ കമ്മറ്റി യോഗത്തിലാണ് തീരുമാനം പദ്ധതിയിൽ അംഗമായ ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സ ലഭ്യമാക്കും

അത്മകഥ ചാപ്റ്റേഴ്സ് ഒന്നും മിണ്ടാതെ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമാതാവാണ് പരുന്ത് കഥപറയുമ്പോൾ തുടങ്ങി ഏഴോളം ചിത്രങ്ങളിൽ പ്രൊഡക്ഷൻ കണ്ട്രോളറായും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു

അപേക്ഷകർ പഴയ റേഷൻ കാർഡ് റേഷൻകാർഡിന്റെ വില ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം

തിരുവനന്തപുരം കാട്ടാക്കടയിൽ നടപ്പാക്കി വിജയിച്ച വാട്ടർസ്കെയിൽ പദ്ധതിയാണ് കണ്ണൂരിലും പ്രാവർത്തികമാക്കുന്നത്